മഹാരാഷ്ട്രയിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ താൽപ്പര്യമോ അംഗബലമോ ഉണ്ടോ എന്നറിയിക്കാൻ ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസിനോട് ഗവർണർ ആവശ്യപ്പെട്ടു കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദിന്റെ പുനരുദ്ധാരണ പ്രവർത്ത നങ്ങൾ ഗവർണർ ആരിഫ്മുഹമ്മദ് ഖാൻ വൈകിട്ട് ഉദ്ഘാ ടനം ചെയ്യും

ഇന്ന് നബിദിനം

ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ എ

ഇന്ത്യയിലെ ജനാധിപത്യം എത്രമാത്രം ഊർജ്ജസ്വലവും ശക്ത വുമാണെന്ന് അയോധ്യക്കേസിലെ സുപ്രീംകോടതി വിധിയിലൂടെ ലോകത്തിന് ബോധ്യപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭി പ്രായപ്പെട്ടു കോടതി വിധിയെ സമൂഹത്തിലെ ഓരോ വിഭാഗവും തുറന്ന മനസ്സോടെ സ്വീകരിച്ചത് പുതിയൊരു പുലരിയുടെ ശുഭാ രംഭം അടയാളപ്പെടുത്തുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അയോധ്യഭൂമി തർക്കക്കേസിലെ സുപ്രീംകോടതി വിധിക്ക് ശേഷം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാ നമന്ത്രി ഏകകണ്ഠവും സുധീരവുമായിരുന്നു സുപ്രീംകോടതി വിധിയെന്ന് വിശേഷിപ്പിച്ച നരേന്ദ്രമോദി കോടതിയുടെ മനക്ക രുത്തും നിശ്ചയദാർഢ്യവും എടുത്തുകാണിച്ചു രാജ്യത്തെ നീതി ന്യായ ചരിത്രത്തിലെ സുവർണകാലത്തിന്റെ ആരംഭമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു ഐക്യത്തോടെ തുടരാനും ഒന്നി ക്കാനും ഒരുമിച്ച് ജീവിക്കാനും വൃക്തമായ സന്ദേശം നൽകുന്ന താണ് സുപ്രീംകോടതി വിധിയെന്നും അദ്ദേഹം വിലയിരുത്തി

ഇത് ഇന്ത്യയുടെ നാനാത്വത്തിലെ ഏകത്വം വൃക്തമാക്കുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മഹാരാഷ്ട്രയിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ താൽപ്പര്യമോ അംഗബലമോ ഉണ്ടോ എന്നറിയിക്കാൻ ബി ജെ പി നിയമസഭാക ക്ഷി നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസിനോട് ഗവർണർ ആവശ്യ പ്പെട്ടു

ജെ

ഇതുസംബന്ധിച്ച മറുപടി നാളെ രാത്രി എട്ടിന് മുമ്പ് നൽകണമെന്നും ഗവർണർ നിർദേശി ച്ചു കത്തിൽ തുടർ നടപടികൾ തീരു മാ നി ക്കാൻ ബി ജെ പി സംസ്ഥാന കോർമ്മറ്റി രാവിലെ മുംബൈയിൽ ചേരു മെന്ന് പാർട്ടി നേതാവ് ചന്ത്രകാന്ത് പാട്ടീൽ അറിയിച്ചു ഗവർണ റുടെ നടപടിയെ ശിവസേന സ്വാഗതം ചെയ്തു സംസ്ഥാനത്തെ ഗവൺമെന്റ് രൂപീകരണത്തിന് ഗവർണർ ശ്രമം തുടങ്ങിയെന്നാണ് ഇതോടെ ബോധ്യപ്പെടുന്നതെന്ന് പാർട്ടിനേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു ശിവസേനയുമായി മുഖ്യമന്ത്രി പദം പങ്കുവെക്കുന്നതുൾപ്പെടെ കാര്യങ്ങളിൽ ബി ജെ പി യിൽ ഭിന്നത തുടരുകയാണ് ഇരുപാർട്ടി കളും ഇതുവരെ ചർച്ചകൾക്ക് പോലും തയ്യാറായിട്ടില്ല കാലാ വധി പൂർത്തിയായതിനെ തുടർന്ന് വെള്ളിയാഴ്ച ദേവേന്ദ്ര ഫഡ്നാ വിസ് മുഖ്യമന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബുൾബുൾ ചുഴലിക്കാറ്റ് പശ്ചിമബംഗാൾ ഒഡിഷ ബംഗ്ലാദേശ് തീരങ്ങളിൽ ആഞ്ഞടിച്ചു ഇന്നലെ രാത്രിയോടെയാണ് ബുൾബുൾ ബംഗാൾ തീരം തൊട്ട ത്

പശ്ചിമബംഗാളിലും ഒഡിഷയിലും ഓരോരുത്തർ മരിച്ചു കൊൽക്കത്ത വിമാനത്താവളത്തിൽ ഏതാനും വിമാനങ്ങൾ സർവീസുകൾ റദ്ദാക്കി

കര വ്യോമ നാവികസേനയും തീരദേശ സേനയും ഏത് സാഹചര്യവും നേരിടാൻ ജാഗ്രതയിലാണെന്ന് അധികൃ തർ കൊൽക്കത്തയിൽ അറിയിച്ചു

ബുൾബുൾ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാ നത്തെ മൂന്ന് ജില്ലകളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാനിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ ആദ്യ മുസ്തിംപള്ളിയായ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാമസ്ജിദിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വൈകിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും മസ്ജി ദിന്റെ പൌരാണിക പ്രൌഢി നിലനിർത്തിക്കൊണ്ടായിരിക്കും പുനർ നിർമ്മാണം ചടങ്ങിൽ മന്ത്രി ഡോ തോമസ് ഐസക് മുഖ്യപ്രഭാ ഷണം നടത്തും

മുഖ്യമന്ത്രി പിണറായി വിജയൻ പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കും

അടിസ്ഥാന പരിശീലനം കൂടാതെ പ്രത്യേക കമാന്റോ ട്രെയിനിങ് കമ്പ്യൂട്ടർ ഡ്രൈവിങ് സ്വിമ്മിങ് യോഗ കളരി പരിശീലനവും ഇവർക്ക് നൽകിയിട്ടുണ്ട് ഇന്ന് നബിദിനം

ഇതിന്റെ ഭാഗ മായി രാജ്യവ്യാപകമായി നബിദിന ഘോഷയാത്രകൾ ഇന്ന് സംഘ ടിപ്പിച്ചിട്ടുണ്ട്

എസ് എഫ് ഇ സുവർണ ജൂബിലി ആഘോഷങ്ങൾ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യും മന്ത്രി ഡോ

നവീകരിച്ച ആസ്ഥാന മന്ദിരവും ചടങ്ങിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ലൈഫ് പദ്ധതിയിൽ സംസ്ഥാനത്ത് ഒരുലക്ഷത്തിൽപരം വീടുകളുടെ നിർമാണം പുരോഗമിക്കുക യാണെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻപറഞ്ഞു

ചന്ദ്രശേഖരൻ നിർവ ഹിച്ചു

ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ എ

കെ ഒന്നിനെതിരെ മൂന്ന് ഗോളിന് ജംഷഡ്പൂരിനെ തോൽപ്പിച്ചു ഇതോടെ എ

കെ പോയന്റ് പട്ടികയിൽ ഒന്നാംസ്ഥാനത്തെത്തി

സി ചെന്നൈയിൻ എഫ്

വൈകിട്ട് ഏഴരയ്ക്ക് ബങ്കലൂരുവിലാണ് മത്സരം

വൈകിട്ട് ഏഴിന് നാഗ്പൂരിലെ വി സി

ഇരു ടീമുകളും ഓരോ ജയത്തോടെ പരമ്പരയിൽ തുല്യത പുലർത്തു കയാണ് സന്തോഷ്ട്രോഫി ഫുട്ബോൾ ദക്ഷിണമേഖലാ മത്സരത്തിൽ തെലങ്കാന ഇന്ന് പുതുച്ചേരിയെ നേരിടും

കർണാടക നേരത്തെ തന്നെ ബി ഗ്രൂപ്പിൽ ചാമ്പ്യനായി ഫൈനൽ റൌണ്ട് യോഗ്യത ഉറപ്പാക്കിയിരുന്നു കോഴി ക്കോട്ട് ഇന്നലെ എ ഗ്രൂപ്പിലെ അവസാനമത്സരത്തിൽ കേരളം തമിഴ്നാടിനെ പരാജയപ്പെടുത്തി ഫൈനൽ റൌണ്ട് യോഗ്യത നേടി ദക്ഷിണേന്ത്യാ അന്തർസർവകലാശാല ഹാന്റ് ബാൾ ചാംപ്യൻഷിപ്പ് അൽപ്പസമയത്തിനകം കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ തുടങ്ങും ബംഗലുരു സർവകലാശാലയും ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ സർവകലാശാലയും തമ്മിലാണ് ആദ്യ മത്സരം രണ്ടാം മത്സരത്തിൽ കണ്ണൂർ സർവകലാശാല കർണാടക സ്റ്റേറ്റ് അക്കമഹാദേവി വിമൻ സർവകലാശാലയെ നേരിടും

വൈകിട്ടാണ് ഔപചാരിക ഉദ്ഘാടനം കായംകുളം ജലോത്സവത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്സബ്ബിന്റെ നടുഭാഗം ചുണ്ടൻ ജേതാക്കളായി

യുബിസി കൈനകരിയുടെ ചമ്പക്കുളം രണ്ടാം സ്ഥാനവും പോലീസ് ബോട്ട് ക്ലബ്ബിന്റെ കാരിച്ചാൽ ചുണ്ടൻ മൂന്നാം സ്ഥാനവും നേടി തൃശൂർ ലാലൂരിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയം രാജ്യാന്തര സ്പോർട്സ് ഹബ്ബായി മാറുമെന്ന് മന്ത്രി എ

സ്റ്റേഡിയത്തിലെ ഇൻഡോർ ഔട്ട്ഡോർ നിർമ്മാണങ്ങ ളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുകയായിരുന്നു മന്ത്രി അയോധ്യാ വിധിയുടെ പശ്ചാത്തലത്തിൽ കോട്ടയം ജില്ലയിൽ ഏഴു ദിവസത്തേക്ക് പൊലീസ് കർക്കശ സുരക്ഷാ നിബന്ധനകൾ ഏർപ്പെടുത്തി ജില്ലയിൽ പൊതുസമ്മേളന ങ്ങൾക്കും പ്രകടനങ്ങൾക്കും റാലികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ പൊലീസ് സൂപ്രണ്ട് പി എസ് ബാബു അറിയിച്ചു കോഴിക്കോട്ട് പതിനേഴാമത് സംസ്ഥാന എക്ക്സൈസ് കലാ കായിക മേള ഇന്ന് സമാപിക്കും വൈകിട്ട് സമാപന സമ്മേളനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും

കോർപ്പറേഷന്റെ അയ്യ ന്തോൾ സോണൽ ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോഴിക്കോട്ട് ചരിത്രപ്രസിദ്ധമായ രേവതിപ്പട്ടത്താനം ഇന്ന് രാവിലെ തളിക്ഷേത്രത്തിലെ വൈദിക ചടങ്ങുകൾക്കുശേഷം പട്ടത്താനശാല പ്രവേശനം നടക്കും തുടർന്ന് പട്ടത്താന സദസ്സ് ആരംഭിക്കും മനോരമ തമ്പുരാട്ടി പുരസ്കാരം ഡോ

ലക്ഷ്മീകുമാരിക്ക് സാമൂതിരി കെ

ഉണ്ണിഅനുജൻ രാജ സമ്മാനിക്കും പ്രളയകാലത്തുൾപ്പെടെ അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തന ങ്ങൾ വിലമതിക്കാനാവത്താണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ വില യിരുത്തി

കാസർകോട് ജില്ലയിൽ കൂടുതൽ അഗ്നിസേന സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്ന കാര്യം ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു മൂന്നാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള ഇന്ന് കണ്ണൂർ തോട്ടട ഗവ ടെക്നിക്കൽ ഹൈസ് കൂളിൽ ആരംഭിക്കും

ഇടുക്കി ശാന്തൻപാറ പുത്തടി ഫാം ഹൌസിലെ കൊലപാത കവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളെ മഹാരാഷ്ട്രയിലെ പനവേലിൽ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തി ഹോട്ടൽമുറി യിൽ കണ്ടെത്തിയ പ്രതി വസീമും കൊലചെയ്യപ്പെട്ട റിജോഷിന്റെ ഭാരൃ ലിജിയും അത്യാസന്ന നിലയിലായിരുന്നു രണ്ടുപേരെയും മഹാരാഷ്ട്ര പൊലീസ് ആശുപത്രിയിലെത്തിച്ചു ഇവരുടെ ഒപ്പമു ണ്ടായിരുന്ന ലിജിയുടെ രണ്ടരവയസ്സുകാരിയായ കുട്ടിയെ മുറി യിൽ മരിച്ചനിലയിലും കണ്ടെത്തി

രണ്ടായിരത്തോളം ഡോക്ടർമാർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ പൊതു സമ്മേളനം ഐ

എ നിയുക്ത പ്രസിഡണ്ട് ഡോ രാജൻ ശർമ്മ ഉദ്ഘാടനം ചെയ്യും